ഡി എഫ് ഗവൺമെന്റ് നിയമിച്ച താൽക്കാലികക്കാരെയാണ് സ്ഥിരപ്പെടുത്തിയതെന്ന മുഖ്യമന്ത്രിയുടെ വാദം കള്ളമാണെന്ന് പ്രതിപക്ഷനേതാവ് രമേശ് ചെന്നിത്തല

എസ് എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡിഷ മത്സരം സമനിലയിൽ പിരിഞ്ഞു വാർത്തകൾ വിശദമായി കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംഘം ഇന്ന് രാത്രി സംസ്ഥാനത്തെത്തും

നാളെ രാവിലെ മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസറുമായും പൊലീസ് നോഡൽ ഓഫീസറുമായും കമ്മീഷൻ അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തും

ഉച്ചകഴിഞ്ഞ് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ ജില്ലാ പൊലീസ് മേധാവികൾ എന്നിവരുമായും വൈകിട്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യനിർവഹണ ഏജൻസികളുമായും കമ്മീഷൻ ആശയവിനിമയം നടത്തും ഞായറാഴ്ച മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ചീഫ്സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി സംസ്ഥാന പൊലീസ് മേധാവി എന്നിവരടക്കം മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകിട്ട് വാർത്താസമ്മേളനം നടത്തും തിങ്കളാഴ്ച പുലർച്ചെ സംഘം ഡൽഹിയിലേക്ക് മടങ്ങും രും കോവിഡ് പ്രതിരോധവുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് മന്ത്രി കെ

ഇപ്പോഴും കോവിഡ് ബാധിച്ച് മരിക്കുന്നവരുടെ എണ്ണത്തിൽ കേരളം സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പിറകിലാണെന്ന് മന്ത്രി മറ്റ് അറിയിച്ചു

എൽ എ മാരുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച ഇ ഹെൽത്ത് പദ്ധതി നടപ്പാക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ജില്ലയാണ് കോഴിക്കോട്

മറ്റ് ജില്ലകളിൽ ഇതിനുതാഴെയാണ് പുതിയ രോഗബാധിതരുടെ എണ്ണം

എം ഒ അറിയിച്ചു രും വയനാട് ജില്ലയുടെ സമഗ്രവികസനം ഉറപ്പാക്കുന്ന വയനാട് പാക്കേജ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പ്രഖ്യാപിക്കും

കൽപ്പറ്റയിലെ പ്രഖ്യാപന ചടങ്ങിൽ കാർബൺ ന്യൂട്രൽ കോഫിപാർക്കിന്റെ വിശദമായ പദ്ധതി റിപ്പോർട്ടും മുഖ്യമന്ത്രി മന്ത്രി ഡോ

വയനാട് കാപ്പി വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കാപ്പിക്കുരുവിന്റെ സംഭരണ പരിപാടി മന്ത്രി ഇ പി ജയരാജൻ ഉദ്ഘാടനം ചെയ്യും കുടുംബശ്രീ കിയോസ്ക്കും മന്ത്രി കൈമാറും രുര പത്രപ്രവർത്തക പത്രപ്രവർത്തേകതര പെൻഷൻ ചട്ടങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു

ചട്ടങ്ങൾ പരിഷ്കരിക്കാൻ രൂപീകരിച്ച കമ്മിറ്റി ഉടൻ ചേരാൻ മുഖ്യമന്ത്രി നിർദേശം നൽകി രുര കോഴിക്കോട്ടെ ഫ്രീഡം സ്ക്വയറും കൾച്ചറൽ ബീച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നാടിന് സമർപ്പിച്ചു സ്വാതന്ത്ര്യ സമരത്തിന്റെ സ്മരണകൾ വർത്തമാനകാലത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിലാണ് സ്ക്വയറിന്റെയും കൾച്ചറൽ ബീച്ചിന്റെയും നിർമ്മാണം മന്ത്രിമാരായ കടകംപള്ളി സുരേന്ദ്രനും കെ കെ ശൈലജയും ചടങ്ങിൽ പങ്കെടുത്തു രുഭ തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ഒന്നാംഘട്ടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നാടിന് സമർപ്പിക്കും

തൃശൂർ മൃഗശാലയിലെ മൃഗങ്ങളെ രാജ്ടയാന്തര നിലവാരത്തിൽ നിർമ്മിക്കുന്ന പാർക്കിലേക്ക് മാറ്റും

ഡി

സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ സമരം ന്യായമായ രീതിയിൽ ചർച്ചചെയ്ത് പരിഹാരമുണ്ടാക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടു

വി തോമസിനെ കെ

സി സി വർക്കിങ് പ്രസിഡണ്ടായി പാർട്ടി അധ്യക്ഷ സോണിയഗാന്ധി നിയമിച്ചു

ശ്രീധരനെ കെ

സി സി വൈസ്പ്രസിഡണ്ടായും നിയമിച്ചിട്ടുണ്ട് കേരളഘടകത്തിന്റെ നിർദേശത്തിന് പാർട്ടി അധ്യക്ഷ അംഗീകാരം നൽകുകയായിരുന്നുവെന്ന് നിയമന വിവരം അറിയിച്ച പാർട്ടി ജനറൽസെക്രട്ടറി കെ സി വേണുഗോപാൽ പറഞ്ഞു

കോവിഡിന്റെ പശ്ചാത്തലത്തിലും മേള നടത്താനെടുത്ത കേരളത്തിന്റെ തീരുമാനം ധീരമാണെന്ന് പ്രശസ്ത നിരൂപകനും ജൂറി അംഗവുമായ അസീം ചബ്ര പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി നിമിഷ അരുൺ രംഭ കൊറിയൻ സംവിധായകൻ കിം കി ഡുക് അർജന്റീനിയൻ സംവിധായകൻ ഫെർണാണ്ടോ സോളനസ് സച്ചി അനിൽ പനച്ചൂരാൻ തുടങ്ങിയ പ്രതിഭകൾക്കാണ് മേളയിൽ ആദരം അർപ്പിച്ചത് ഛായാഗ്രാഹകൻ കെ

ചലച്ചിത്ര പ്രതിഭകളെ വാർത്തെടുക്കാനും അവർക്ക് അവസരം ഒരുക്കാനും രാജ്യാന്തര ചലച്ചിത്രമേള സഹായിക്കുന്നുണ്ടെന്ന് ഓപ്പൺ ഫോറം വിലയിരുത്തി മേളയിൽ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചതിലൂടെ പലരും ചലച്ചിത്രലോകത്തെ പ്രതിഭ തെളിയിച്ചുവെന്ന് സംവിധായകൻ കമൽ പറഞ്ഞു

എൽ ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡിഷ എഫ്

ഇന്ന് വൈകിട്ട് ഈസ്റ്റ് ബംഗാൾ ഹൈദരാബാദ് എഫ് സി യെ നേരിടും രുര കാഴ്ചപരിമിതരുടെ നാഗേഷ് ട്രോഫി ടൂർണമെന്റിൽ ഇന്നലെ കേരളത്തിന് ആദ്യ തോൽവി

മഹാരാഷ്ട്രക്കെതിരെയാണ് കേരളത്തിന്റെ അടുത്ത മത്സരം പൊതുവിദ്യാഭ്യാസ സംരക്ഷണയജ്ഞത്തിന്റെ ഭാഗമായി മോഡൽ റസിഡൻഷ്യൽ സ്കൂളുകളെയും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താൻ പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടു ണ്ടെന്ന് മന്ത്രി എ

കമ്പ്യൂട്ടർ സയൻസ് ലാബുകൾ സ്കൂൾ റേഡിയോ കരിയർ ഗൈഡൻസ് തുടങ്ങിയ അക്കാദമിക് പ്രവർത്തനങ്ങളും സജ്ജമായി വരികയാണെന്ന് മന്ത്രി പറഞ്ഞു കണ്ണൂർ പട്ടുവത്തെ മോഡൽ റസിഡൻഷ്യൽ സ്കൂളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സ്റ്റാഫ് ക്വാർട്ടേഴ്സും അനുബന്ധ കെട്ടിടങ്ങളും ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി രുഭ കൊച്ചി ദർബാർഹാൾ കലാകേന്ദ്രത്തിൽ ടി കെ പത്മിനി ആർട്ട് ഗാലറി മന്ത്രി എ

കെ പത്മിനിയെന്ന് മന്ത്രി അനുസ്മരിച്ചു രും ക്ഷീര സഹകരണ സംഘങ്ങൾ ഉൽപ്പാദന പ്രക്രിയയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ശക്തമായ സാന്നിധ്യമായി മാറണമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു ഇന്നലെ കൊല്ലത്ത് ആരംഭിച്ച ക്ഷീരസംഗമത്തിൽ ക്ഷീരസഹകരണ സംഘം ജീവനക്കാർക്കായി സംഘടിപ്പിച്ച ശില്പശാല ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി

രുമ ഇ റേഷൻകാർഡിന്റെ പൈലറ്റ് പദ്ധതി രാവിലെ മന്ത്രി പി തിലോത്തമൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും ഇ ആധാർ മാതൃകയിൽ ആവശ്യക്കാർക്ക് സ്വയം പ്രിന്റ് ചെയ്ത് എടുക്കാൻ കഴിയുന്നതാണ് ഇലക്ട്രോണിക് റേഷൻകാർഡ് തിരുവനന്തപുരം നോർത്ത് സിറ്റി റേഷനിംഗ് ഓഫീസ് പരിധിയിലാണ് പദ്ധതി ആദ്യം നടപ്പാക്കുന്നത് രും ശബരിമല തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് കൊല്ലം ജില്ലയിലെ കുളത്തൂപ്പുഴ ആര്യങ്കാവ് അച്ചൻകോവിൽ ധർമ്മശാസ്ത ക്ഷേത്രങ്ങളെയും പ്രധാന കേന്ദ്രങ്ങളെയും ബന്ധിപ്പിച്ച് പ്രസാദ് ടൂറിസം പദ്ധതി പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി പ്രഹ്ലാദ്സിംഗ് പട്ടേൽ ഉറപ്പുനൽകിയതായി എൻ

പദ്ധതിയുടെ വിശദമായ രൂപരേഖ അടങ്ങിയ റിപ്പോർട്ട് സമർപ്പിക്കാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്